പുതുക്കിയ പട്ടിക ആരോഗ്യമന്ത്രാലയം പുറത്തിറക്കി

നിക്ഷേപകരെ സഹായിക്കൂന്നതിനായി രാജ്യത്ത് കൂടുതൽ ന് പ്രോത്സാഹന നടപടിക്കൾ സ്പീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പൊതുഗതാഗതം അനുവദിക്കില്ലെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ്

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തൊഴിൽ മേഖല ഏറ്റവുമധികം വെല്ലുവിളി നേരിടുമ്പോഴാണ് ഇത്തവണത്തെ തൊഴിലാളിദിനം

കേരളത്തിലെ കണ്ണൂർ കോട്ടയം ജില്ലകൾ റെഡ്സോണിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എറണാകുളവും വയനാടും ഗ്രീൻ സോണിലാണ് പ്രാദേശിക തലത്തിൽ കോവിഡ് തീവ്രബാധിത മേഖലകൾ കണ്ടെത്താൻ കേന്ദ്രം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളെ ഹോട്ട്സ്പോട്ടുകൾ റെഡ്സോണുകൾ ഓറഞ്ച് സോണുകൾ ഗ്രീൻ സോണുകൾ എന്നിങ്ങനെ തിരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സംസ്ഥാന ചീഫ്ട് സെക്രട്ടറിമാർക്ക് കത്തിലൂടെ നിർദ്ദശം നൽകി

ഇൻഡോറിലാണ് ഏറ്റവുമധികം കോവിഡ് രോഗികൾ ഉള്ളത്

ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ടായിരുന്നു രാജ്യത്ത് രോഗികളുടെ എണ്ണം ഇരട്ടിച്ചിരുന്നത്

രാജ്യത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് സ്ട്ബ്സ്ട്ച്ച് പ്രധാനമന്ത്രി ഇന്നലെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിരുന്നു

രാജ്യത്ത് വിവിധ ജില്ലകളിൽ ഗണ്യമായ ഇളവ് മേയ് നാലിനുശേഷം ഉണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അന്തർ സംസ്ഥാന അതിർത്തികളിൽ ട്രക്കുകളുടെ സ്വതന്ത്രമായ നീക്കം ഉറപ്പാക്കണമെന്ന് ആഭ്യുന്തര സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ ആവ്ശ്യപ്പെട്ടു

നാഷണൽ കൌൺസിൽ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ജെ

എച്ച്

റെഡ് ഗ്രീൻ സോണുകൾ പുനഃക്രമീകരിക്കുന്നത് സംസ്ഥാനത്തെ വിദഗ്ധ സമിതി പരിശോധിക്കുമെന്ന് ശ്രീ ടോം ജോസ് തിരുവനന്തപുരത്ത് വാർത്താലേഖകരോട് പറഞ്ഞു ഇളവുകൾ ഏർപ്പെടുത്തിയാലും പൊതുഗതാഗതം ഉണ്ടാകില്ല റെഡ് സോൺ സംബന്ധിച്ച ആശയകുഴപ്പമില്ലെന്നും ഹോട്സ് സ്പോട് മേഖലകളിൽ ഇളവ് ലഭിക്കില്ലെന്നും ചീഫ് സെക്രട്ടറി വൃക്തമാക്കി

പരിശോധനാ ഫലത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് വ്യത്യാസം വരാറുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താലേഖകരോട് പറഞ്ഞു ഫലം തീർച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതായും ആദ്യ ഫലം അനുസരിച്ചുള്ള തുടർ നടപടികളാണ് നിലവിൽ സ്വീകരിച്ച് വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി

പത്ത് ലക്ഷത്തിലധികം പേർക്ക് ഇവിടെ രോഗബാധ സ്ഥിരീക്കരിച്ചു

കൊറോണ വൈറസ് സംബന്ധിച്ച് ലോകാരോഗൃ സംഘടന തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നും യു

കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്നതിൽ ലോകാരോഗ്യസംഘടനയുടെ പങ്ക് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ട്രംപ് സംഘടന ചൈനയുടെ പക്ഷം പിടിക്കുന്നതായും ആരോപിച്ചു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യസംഘടനയ്ക്കുള്ള സഹായം അമേരിക്ക നിർത്തലാക്കിയിരുന്നു ചൈനയിലെ വുഹാനിൽ നിന്ന് വൈറസ് എങ്ങനെ പടർന്നു എന്നത് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകുമെന്നും അമേരിക്ക വ്യക്തമാക്കിയിരുന്നു

ദക്ഷിണ കൊറിയയിൽ ഇന്നലെ പുതിയ ക്ടോവീഷ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല വൈറസ് പടരുന്നീത് തടയുന്നതിലും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതില്പ്പും ദ്ദ്ക്ഷിണ കൊറിയ വിജയിച്ചിരിക്കുകയാണെന്ന് യു്എൻ സെക്രട്ടറി ജനറൽ അഭിപ്രായപ്പെട്ടു

ഒൻപതിനായിരത്തോളം പേർ ഇതിനകം രോഗമുക്തരായി

റസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ സ്കൂളുകൾ കിന്റർ ഗാർഡനുകൾ എന്നിവ തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനമായില്ല

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തൊഴിൽ മേഖല ഏറ്റവുമധികം വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ തൊഴിലാളിദിനം

എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യമാണ് തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങളുടെ ആധാരം